ലത്തൂറിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്സീൻ ചീറ്റ്

ഫോനി ചുഴലിക്കാറ്റ് നാളെ ഒഡീഷ തീരം കടക്കും

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

നടപടി ഈ ദിശയിലെ ഒരു സുപ്രധാന ചുവട് വയ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു

ഇന്ത്യയുടെ നിലപാടിന്റെയും ഇന്ത്യ നല്കിയ തെളിവുകളുടെയും ശരിയായ പ്രതിഫലനമാണ് യു

ഭീകരർക്കെതിരായ ഇന്ത്യൻ പ്ടരിശ്രമ്ങ്ങളുടെ വലിയ വിജയമാണ് യു

ജയ്പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹർ അന്താരാഷ്ട്ര സമൂഹം യു

സ്വത്തുക്കളുടെ മരവിപ്പിക്കൽ യാത്രാ ന്ദ്രീരോധനം ആയുധ വില്പനയിലെ നിരോധനം എന്നീ ്കാര്യങ്ങൾ നടപ്പാക്കാൻ എല്ലാ അംഗരാഷ്ട്രങ്ങളും ബാധ്യസ്ഥരാണെന്ന് യു

എൻ

എന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീനാണ് ടിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

പുൽവാമ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ ജയ്ഷെ മുഹമ്മദിന് പങ്കുണ്ട് ഇക്കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞത് യു

ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതോടെ മസൂദ് അസറിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ കഴിയും

അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങൾ നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നൂ

എന്നിന്റെ നടപടിക്ക് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി ആ്ട്രിയിക്കുന്നതായി ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധി സയ്യിദ് ആക്ബ്റുദ്ദീൻ ട്വിറ്ററിൽ അറിയിച്ചു

ജെ

ഭീകരതയ്ക്കെതിരെ യാതൊരു വിട്ടു വീഴ്ചയ്ക്കുമില്ലെന്ന നിലപാടിന്റെ വ്യക്തമായ പ്രതിഫലനമാണിതെന്ന് അമിത്ഷാ പറഞ്ഞു

എൻ

ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ഉറച്ചതാണെന്ന് പാർട്ടി വക്താവ് രൺദീപ് സുർജെവാല പറഞ്ഞു അസറുടെ ഭീകര പ്രവർത്തനങ്ങളിൽ പുൽവാമ ഭീകരാക്രമണം യു എൻ ഉൾപ്പെടുത്താത്തത് നിരാശാജനകമാണെന്ന് വക്താവ് പറഞ്ഞു

സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പ്രധാനമന്ത്രിയുടെ പ്രസംഗം പൂർണമായും തെരഞ്ഞെടുപ്പ് കമ്മറ്റി അംഗങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു മധ്യപ്രദേശിലെ ഷാഹ്ദോലിൽ രാഹുൽഗാന്ധി മാതൃക പെരുമാറ്റചട്ടലംഘനം നടത്തി എന്ന പരാതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു

കോൺഗ്രസ് നേതാവും പഞ്ചാബ് മന്ത്രിയുമായ നവജ്യോത് സിങ്ങ് സിദ്ദുവുനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് അഹമ്മദാബാദിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശ്ശങ്ങളെത്തുടർന്നാണ് നടപടി

ഇതിനിടെ കോൺഗ്രസ് നേതാവ് കമൽനാഥിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി തെര്ഭ്ണ്യെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകി

എസ് മേധാവി ഹേമന്ദ് കർക്കറെക്കെതിരായും നടത്തിയ വിവിദ പരാമർശത്തിൽ ഭോപ്പാലിലെ ബി ജെ

മധ്യപ്രദേശിലെ പിപ്പൂരിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സർസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി കർഷകരുടെ പ്രശ്ന്മങ്ങൾ പരിഹരിക്കുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്നു്ം കർഷകർക്കായി പ്രത്യേക ബഡ്ജറ്റ് ഒരുക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു

മധ്യപ്രദേശിലെ ഹോഷംഗാബാദിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഖോർദ കട്ടക്ക് ജാജ്പൂർ ഭദ്രക് ബാലസോർ എന്നീപ്പിടങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്

യും ആവശ്യപ്പെട്ടു

ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ ഫട്നാവിസ് ഉടൻ രാജി വയ്ക്കണമെന്ന് എൻ സി

അധ്യക്ഷൻ ശര്ത് പ്പാർ ട്വീറ്റ് ചെയ്തു

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർകിംഗ്സിന് വൻവിജയം

നേരത്തെ സുരേഷ് റെയ്നയുടെയും ധോണിയുടെയും മികച്ച ബാറ്റിംഗിലാണ് ചൈന്നെ ഭേദപ്പെട്ട സ്കോർ പടുത്തുയർത്തിയത്

പ്രണോയിയും ബി സായ് പ്രണീതും ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നു

ഹോക്കി ഇന്ത്യയാണ് ഗോൾ കീപ്പറായ ശ്രീജേഷിന്റെ പേര് ശുപാർശ ചെയ്തത് ആകാശ് ദീപ്സിംഗ് ചിംഗ്ലെൻസന സിംഗ് വനിതാ താരം ദീപികാ താക്കൂർ എന്നിവളു ആർജ്ജുന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തു

ജെ പി ദേശീയ സെക്രട്ടറിയും സംസ്ഥാന പ്രഭാരിയുമായ എച്ച്

കൊച്ചിയിൽ ബി ജെ

പ്രളയക്കെടുതിയും ശബരിമല വിഷയവും ബി ജെ പിക്ക് അനുകൂലമായി വർത്തിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു

വിശ്ന്നു വലയുന്നവർ ഇല്ലാത്ത ഇടുക്കി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യ ഘട്ടമായി അന്നപൂർണ്ണം തൊടുപുഴ പദ്ധതി ഇന്ന് തൊടുപുഴ മുനിസിപ്പൽ ടൌൺ ഹാളിൽ തുടങ്ങും